നിയമസഭാ വോളട്ടുപ്പുകൾ സമാധാനപരം

സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നൂടത്തി രാജ്യം വിടുന്നവരെ വിട്ടുകിട്ടാനുള്ള ഇന്ത്യയുട്ട ്ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതായി പ്രധാന്മ്പ്രി നരേന്ദ്രമോദി

കൃഷ്ണമൂർത്തി സൂബ്രഹ്മണ്യനെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിക്കും

ശക്തമായ മത്സരം നടന്ന ഇരു സംസ്ഥാനങ്ങളിലും കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്

ബി എസ് പി സ്ഥാനാർത്ഥിയുടെ മരണത്തെത്തുടർന്ന് രാംഗഡ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മാറ്റിവച്ചിരിക്കുകയാണ് രാജസ്ഥാൻ മുഖ്യമനത്രി വസുന്ധര രാജെ സിന്ധ്യ സ്വന്തം മണ്ഡലമായ ഝാൽറാപാഠനിൽ വോട്ട് രേഖപ്പെടുത്തി

തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേയും വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും

മുതിർന്ന നേതാക്കളായ ജെ പി നദ്ദ മുഖ്താ അബ്ബാസ് നഖ്വി എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിഷനെ സമീപിച്ചത്

സ്വതന്ത്രവും നിഷ്പക്ഷവുമായ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ രാഹുൽഗാന്ധി ശ്രമിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും പരാതിയിൽ പറയുന്നു

രാജ്യത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയവർക്ക് വിദേശരാജ്യങ്ങളിൽ അഭയം ലഭിക്കാത്ത തരത്തിൽ അന്താരാഷ്ട്രതലത്തിൽ നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്

സാമ്പത്തിക്ട് കുറ്റവാളികളെ വിട്ടുകിട്ടുന്നതിനായി ശക്തമായ സഹകരണ്മാണ് അവർ വാഗ്ദാനം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു

ഹർജിക്കാരനായ അഡ്വ

അനാവശ്യമായി പരാതി ഉന്നയിച്ചു എന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്

രഥയാത്രകൾക്ക് അനുമതി നിഷേധിച്ചു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ജനാധിപത്യ ബാനർജി പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അമിത്ഷാ ന്യൂഡൽഹിയിൽ പറഞ്ഞു

തൃണമുലിന്റെ ദുർഭുർണത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നതിനാലാണ് ബിജെപിയെ അവർ ഭയക്കുന്നതെന്നും അദ്ദേഹ്ഗം കൂട്ടിച്ചേർത്തു

അരവിന്ദ് സുബ്രഹ്മണ്യം രാജി വച്ച ഒഴിവിലാണ് പുതിയ നിയമനം ഹൈദരാബാദിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിൽ ഡോ

തീവ്രവാദം നേരിടുന്നതിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങളേയും അനുബന്ധ നിയമങ്ങളേയും ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത ഗുട്ടെറസ് വൃക്തമാക്കുന്നു

പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് സമാനമായ കുറ്റകൃതൃങ്ങളിൽ ഉൾപ്പെടാൻ പാടില്ല ചിത്തിര ആട്ട വിശേഷ ദിവസം ശബരിമലയിൽ സ്ത്രീയെ തടഞ്ഞ കേസിലാണ് സുരേന്ദ്രന് ജാമ്യം സുരേന്ദ്രന് ജാമ്യം അനുവദിക്കുന്നതിനെ പോലീസ് ഹൈക്കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു

ന്യൂഡൽഹിയിൽ നടന്ന എയിംസ് ബിരുദ ദാനചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗര ഗ്രാമ അന്തരം കുറച്ചുകൊണ്ടുവന്ന് എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് പുതിയ കണ്ടുപ്പിട്ടിത്ത്ങൾക്കനുസൃതമായി മെഡിക്കൽ വിദ്യാഭ്യാസം നവീകുരിക്ക്ണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇക്കാരൃത്തിൽ മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് എയിർസ്സിനെ മാതൃകയാക്കാവുന്നതാണ് ആയുഷ്മാൻഭാരത് പശ്ചതി പാവങ്ങളുടെ ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ് പങ്കു വഹിക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

സൈബർ സുരക്ഷയെ മുൻനിർത്തിയാണ് നടപടി ചൈനയിലെ ചില ടെലികോം കമ്പനികളുടെ ഉത്പന്നങ്ങൾ രാജ്യസൂരക്ഷക്കും സൈബർസൂരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് നിരോധനത്തിനായി നിലവിലെ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതും ജപ്പാൻ ആലോചിക്കുന്നുണ്ട്

തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനും ബംഗാളി സംവിധായകൻ ബുദ്ധദേവ് ദാസ് ഗുപ്ത മുഖ്യ അതിഥിയും ആയിരുന്നു

ഏഴു ദിവസം മേള നീണ്ടു നില്ക്കും

രജനറിയിലെ സുന്ദ്രബനി അതിർത്തിയിൽ ഇന്നലെ നടന്ന വെടിവയ്പ്പിലാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത് രാജ്യത്തിന്റെ യശസ്നനായി ജീവത്യാഗം അനുഷ്ഠിച്ച അദ്ദേഹത്തിന് എല്ലാ ഉദ്യോഗസ്ഥരും അർപ്പിച്ചു പുഷ്പചക്രം ബി എസ് എഫ് ഐ ജി രാം അവതാറും ജമ്മു ഐ ജി ഡോ

ഭൌതികാവശിഷ്ടം വിമാനമാർഗ്ഗം സ്വദേശമായ കൊൽക്കത്തയിലെത്തിക്കും

മാധ്യമങ്ങൾ പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ വിവാദമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും

നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന പൂൾ സിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ കാനഡയെ നേരിടും ഗ്രൂപ്പിലെ ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും ഇന്ത്യൻ ടീം വിജയം ഉറപ്പാക്കിയിട്ടുണ്ട് കാനഡയുമായുള്ള നാളത്തെ മത്സരത്തോടെ ക്വാർട്ടർ ഫൈനലിൽ കടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്തൃ പൂൾ സിയിലെ നാളത്തെ ആദ്യമത്സരം ബൽജിയവും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്